പൂൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാജൃത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്ര ്മോദി ഇന്ന് മഹാരാഷ്ട്ര സന്ദർശിക്കും സംസ്ഥാനത്തെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

അതിർത്തിയിൽ സുരക്ഷാ മതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് രാജൃത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു

ഗൂവാഹത്തിയിൽ നടക്കുന്ന ദേശീയ സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് പി

സിന്ധുവും സൈന നെഹ്വാളും ഏറ്റുമുട്ടും

വീരമൃത്യു വരിച്ച സൈനികരുടെ ഭൌതിക ശരീരം ഇന്നലെ വൈകുന്നേരമാണ് ജമ്മുകശ്മീരിൽ നിന്ന് ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ എത്തിച്ചത്

കേന്ദ്ര ആഭ്യന്തരമൃത്രീ രാജ്നാഥ് സിംഗ് ഭൌതികശരീരം ഏറ്റുവാങ്ങി രാജ്യരക്ഷാ മൂന്തി നിർമ്മലാ സീതാരാമൻ വാർത്താ വിതരണ പ്രക്ഷേപണ പ്രികൂപ്പ് മന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ് കോൺഗ്രസ് അധ്യക്ഷ്ടൻ രാഹുൽ ഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ് കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് വ്യോമസേനാ മേധാവി ധനോവ നാവിക സേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാംബെ ഉൾപ്പെടെയുളളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു രാജ്യത്തിന് വേണ്ടി സൈനികർ നൽകിയ ജീവത്യാഗം ഒരിക്കലും പാഴാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ പൊതുജനറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടു പറഞ്ഞു ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും ഭീകരാക്രമണത്തിന് തക്ക മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ന്യൂഡൽഹിയിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഇന്നലെ ജമ്മുകശ്മീർ സന്ദർശിച്ചു ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ്ബ സുരക്ഷാ ഇന്റലിജൻസ് വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വി വസന്തകുമാറിന്റെ ഭൌതിക ശരീരം ഇന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കും

കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ ക്കടന്നപ്പള്ളി ഇ

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനും മുണ്ട്യമന്ത്രിക്കു വേണ്ടിയും മന്ത്രിമാർ ഉപചാരമർപ്പിക്കും

തുടർന്ന് റോഡു മാർഗം ഭൌതികശരീരം ജന്മനാടായ വയനാട്ടിലേക്ക് കൊണ്ടുപോകും ലക്കിടി എൽ

ആഭ്യന്തര മന്ത്രി രാജ് നാഥ് സിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കും പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ചും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നടപടികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും ഇന്നലെ ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ മന്ത്രിസഭാ യോഗത്തിലാണ് സർവകക്ഷിയോഗം ചേരാൻ തീരുമാനമെടുത്തത്

അമേരിക്കയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇന്ത്യൻ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ധോവലിനെ ഫോണിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം

ടി

പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവീൻമാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ജയ്പൂരിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുമായി സുനിൽ അറോറ ചർച്ച നടത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് രാജസ്ഥാനിൽ എത്തിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് പോളിംഗ് ബൂത്തുകളിലെ സൌകര്യങ്ങൾ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം തുടങ്ങി എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്തി

വാദ്രയുടെ സ്കൈ ലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഉൾപ്പെടെയുള്ള കമ്പനികളുടെ സ്വത്താണ് കണ്ടുകെട്ടിയിട്ടുള്ളത് കമ്പനി അനധികൃതമായി നാലു കോടിയിലേറെ ആദായം ഉണ്ടാക്കിയതായി എൻഫോഴ്സ്മെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു

കേസുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്രെയും അമ്മയും കഴിഞ്ഞയാഴ്ച ജയ്പൂരിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു

നിരവധി വികസന പദ്ചതികൾക്ക് തുടക്കം കുറിക്കും കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ് മഹാരാഷ്ട്രയിൽ യവാട്മാളിലെ നന്ദേതിൽ നിർമ്മിച്ച ഏകലവ്യ മോഡൽ റസിഡൻഷ്യൻ സ്കൂൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ഇതോടൊപ്പം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

നാഗ്പൂരിനും പൂനെയ്ക്കും ഇടയിൽ സർവ്വീസ് നടത്തുന്ന ട്രെയിനിൽ എ

സുൽവാഡെ ജംഫാൽ കനൌലി ജലസേചന പദ്ധതിക്കും ശ്രീ മോദി തറക്കല്ലിടും

ഇതോടൊപ്പം അമൃത് പദ്ധതിയുടെ കീഴിൽ ധൂലെ നഗര ജലവിതരണ പദ്ധതിക്കും അദ്ദേഹം ശിലാസ്ഥാപനം നിർവ്വഹിക്കും ഇതുകൂടാതെ ധൂലെ നർദാന റെയിൽവേ പാതയ്ക്കും ജൽഗോ മൻമാദ് പാതയിലെ മൂന്നാമത്തെ റെയിൽപാതയ്ക്കും ശ്രീ മോദി തറക്കല്ലിടും ബുസാവൽ ബാന്ദ്ര ഖാൻദേശ് എക്സ്പ്രസ് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തേക്കുള്ളൂ അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുവരവ് തടയുന്നതീന് മതിൽ അത്യാവശ്യമാണെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ അറീയിച്ചു് ഇതിനാവശ്യമായ തുക മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനം ്സംയുക്ത സൈനിക നിർമാണ പദ്ധതി തുടങ്ങിയവയിൽ നിന്നും സ്വരൂപിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ട്രംപ് അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ് ഇ ടൂറിസ്റ്റ് ഇ ബിസിനസ്സ് വീസകളിൽ നിരവധി തവണ രാജ്യത്തെത്തുന്നവർക്ക് ഒരു വർഷം വരെ രാജ്യത്ത് തുടരാനാകും

ഇന്ത്യ സന്ദർശിക്കാൻ വിദേശികൾക്ക് ഇ ടൂറിസ്റ്റ് വീസ വഴി മൂന്ന് തവണ മാത്രം എന്ന നിബന്ധനയും ഇതോടൊപ്പം എടുത്തുമാറ്റി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തുടർന്ന് മൊറോക്കോയിൽ എത്തു്ന ശ്രീമതി

മൊറോക്കോ സന്ദർശിച്ചശേഷം സ്പെയിനിലെത്തുന്ന ശ്രീമതി സുഷമാ സ്വരാജ് സ്പെയിൻ വിദേശകാര്യ മന്ത്രിയുമായി പ്രാദേശിക ആഗോള വിഷയങ്ങളടക്കം ഉഭയകക്ഷി ചർച്ച നടത്തും

സിന്ധുവും സൈന നെഹ്വാളും ഏറ്റുമുട്ടും

സൈന നെഹ്വാൾ ദേശീയ സീനിയർ ബാഡ്മിന്ററൺ കിരീടം മൂന്ന് തവണയും പി

സിന്ധു രണ്ട് തവണയും സ്വന്തമാക്കിയിട്ടുണ്ട്

പുരുഷ വിഭാഗം ഡബിൾസിൽ പ്രണവ് ജെറിചോപ്ര ചിരാക് ഷെട്ടി സഖ്യം അർജ്ജുൻ എം ആർ ഷ്ലോക്ക് രാമചന്ദ്രൻ സഖ്യത്തെ നേരിടും